ടി യിൽ ഇളവ് അനുവദിച്ചു

കേരളത്തിൽ ഗതാഗത നിയമലംഘനത്തിനുള്ള പിഴ തുക കുറയ്ക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം

യാത്രാമദ്ധ്യേ അദ്ദേഹം ഫ്രാങ്ക്ഫർട്ടിലെത്തി

സുസ്ഥിര വളർച്ചയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഐകൃരാഷ്ട്രസഭയുടെ പരിപാടികളിൽ തുറന്ന് കാട്ടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അമേരിക്കയിലേയ്ക്ക് പുറപ്പെടും മുമ്പ് നടത്തിയ പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാരൃം അറിയിച്ചത്

നാളെ ഹൂസ്റ്റണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡോണാൾഡ് ട്രംപുമായി ചേർന്ന് ഹൌഡി മോദി ചടങ്ങിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും അമേരിക്കൻ പ്രസിഡന്റ് ആദ്യമായാണ് ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത് തിങ്കളാഴ്ച ന്യൂയോർക്കിൽ കാലാവസ്ഥ ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ഊർജ കമ്പനികളിലെ മേധാവികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും ആരോഗൃ രംഗത്ത് ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉൾപ്പെടെയുള്ള പരിപാടികളിലൂടെ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ആഗോള ആരോഗ്യ പരിരക്ഷ എന്ന യു എൻ പരിപാടിയിൽ വിശദീകരിക്കും സന്ദർശനത്തിനിടെ നിരവധി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചയും പ്രധാനമന്ത്രി നടത്തും

രണ്ട് സംസ്ഥാനങ്ങളിലും മാതൃകാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു

രജൌരി പൂഞ്ച് ജില്ലകളിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് പാക് സൈനൃം വെടിവെയ്പ്പ് നടത്തിയത് ഇന്ത്യൻ സൈന്യം ശക്തിയായി തിരിച്ചടിച്ചതായി പ്രതിരോധ വക്താവ് ജമ്മുവിൽ പറഞ്ഞു

ഹോട്ടൽ മുറികൾക്കുള്ള നിരക്ക് ക്കൾപ്പെടെ വിവിധ വിഭാഗങ്ങളിൽ ഇന്നലെ ചേർന്ന ജി

കൌൺസിൽ യോഗം നിരക്കുകളിൽ കുറവുവരുത്തി കൂടുതൽവിവരങ്ങളുമായികൃഷ്ണ വോയ്സ് ഗോവയിൽ ചേർന്ന ജി

മുറികളുടെജി

പെട്രോൾവാഹനങ്ങൾക്കും ഉള്ള നികുതി നിരക്കിൽകുറവു വരുത്താൻ കൌൺസിൽ മന്ത്രിമാരുടെ സമിതിക്ക് ശുപാർശചെയ്തിട്ടുണ്ടെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു

ഇവയുടെ ജി

ടിയിൻ കീഴിൽ നികുതിദായകരുടെ രജിസ്ട്രേഷൻ ആധാറുമായി ബന്ധപ്പെടുത്താനും യോഗം തീരുമാനിച്ചു റീഫണ്ട് അവകാശത്തിന് ആധാർ നിർബന്ധമാക്കാനുള്ള സാധ്യതയും യ്യോഗം പരിശോധിച്ചു

ഇത് സംബന്ധിച്ച കരാറിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു മംഗോളിയൻ പ്രസിഡന്റ് ബട്ടുൽഗ ഖൽട്ടുമ ഇന്നലെ ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായി കൂടിക്കാഴ്ച നടത്തി

ദുബായ് എക്സ്പോ നടക്കുന്ന ഓപ്പർച്യൂണിറ്റി ഡിസ്ട്രിക്റ്റിലെ നാല് നിലക്ട്ളൂള്ള ഇന്ത്യൻ പവിലിയന്റെ മാതൃക അദ്ദേഹം പ്രകാശനം ച്ചെയ്യുടെ ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തെയും സംസ്ക്കാരത്തെയും ക്ഷ്മന്ത്യ യു എ ഇ ബന്ധത്തെയും പവിലിയൻ പ്രതിനിധീകരിക്കുമെന്ന് ക്ടേൺസൽ ജനറൽ വിപുൽ ദുബായിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

അപകടങ്ങൾ കുറയ്ക്കാനും ജീവൻ രക്ഷിക്കാനുമാണ് മോട്ടോർവാഹന നിയമഭേദഗതി റവന്യൂവരുമാനം കൊണ്ടുവന്നത് വർധിപ്പിക്കുകയല്ലലക്ഷ്യമെന്ന് ശ്രീ

മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചുചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം തുക എത്രയായി കുറയ്ക്കണമെന്ന കാര്യത്തിൽ തീരുമാനമായില്ല വൃക്തതയ്ക്കായി കേന്ദ്ര ഗവൺമെന്റിന് വീണ്ടും കത്തയക്കാനും യോഗത്തിൽ ധാരണയായി

പുതിയ മോട്ടാർ വാഹന ഭേദഗതി നിയമമനുസരിച്ച് വാഹന രേഖകളുടെ പേപ്പർ രൂപം കൈവശം വയ്ക്കേണ്ട ആവശ്യമില്ല

രേഖകൾ മൊബൈൽ ഫോണിൽ ഡൌൺലോഡ് ചെയ്യാവുന്നതാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്

സമ്പദ്ഘടനയ്ക്ക് തീരുമാനം വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടെന്നും വ്യാപാര സംഘടനകൾ വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ ഹോൾഡ് വോയിസ് കമ്പനി നികുതിയിൽ കുറവ് വരുത്തിയ നടപടി സമ്പദ്ഘടനയ്ക്ക് ഉത്തേജനവും മത്സരക്ഷമതയും വർദ്ധിപ്പിക്കുമെന്ന് വൃവസായ വാണിജ്യ കോൺഫെഡറേഷൻ ഫിക്കി പറഞ്ഞു

കോർപ്പറേറ്റ് നികുതിയിൽ ഇളവ് വരുത്താനുള്ള തീരുമാനം ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു ഈ നടപടി മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയ്ക്ക് ഊർജ്ജം പകരുമെന്നും കൂടുതൽ സ്വകാര്യ നിക്ഷേപം ഇന്ത്യയിലേയ്ക്ക് ആകർഷിക്കുമെന്നും അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു

ഗുരുവിന്റെ സമാധി സ്ഥലമായ കേരളത്തിലെ വർക്കല ശിവഗിരിയിൽ പുലർച്ചെ മുതൽ വിശേഷപൂജകൾ ആരംഭിച്ചു മഹാസമാധി സമ്മേളനം കേന്ദ്രമന്ത്രി ആർ

കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ കീഴിൽവരുന്ന സാധനങ്ങൾക്ക് വില വർദ്ധന ഉണ്ടായിട്ടില്ലെന്ന് ശ്രീ പാസ്വാൻ അറിയിച്ചു